പ്രചാരണം ഊർജ്ജിതം വോട്ടെടുപ്പ് തിങ്കളാഴ്ച

പ്രധാനമന്ത്രിയും ബി ജെ

അന്വേഷിക്കാൻ മുൻ ജസ്റ്റീസ് എ

രാജസ്ഥാൻ റോയൽസിന് മൂന്ന് വിക്കറ്റ് ജയം

വിവിധ സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഊർജ്ജിതമായ പ്രചാരണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മധ്യപ്രദേശിലെ സിദ്ധി ജപൽപൂർ എന്നിവിടങ്ങളിലും മുംബൈയിലെ ബാന്ദ്രാ കുർള കോംപ്ലക്സിലും ഇന്ന് പ്രചാരണ റാലികളിൽ പങ്കെടുക്കും പ്രബ്ദീ ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രാജസ്ഥാനിലെ ജല്ലോറിൽ പ്രചാരണ റാലിയെ അഭിസംബോധന ചെയ്യും കോൺഗ്രസ് അധ്യക്ഷൻ രാഹൂൽഗാന്ധി ബീഹാറിലെ സമഷ്ടിപൂർ ഒഡീഷയിലെ ബാലസോർ മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയ്യങ്കാ ഗാന്ധി ഉത്തർപ്രദേശിലെ വാദ്രായിലും ബി

പി നേതാവ് മായാവതി ഉറായ് ജലൌൻ എന്നിവിടങ്ങളിലും പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും

വിവിധ കക്ഷികളിലെ പ്രമുഖർ പ്രചാരണ രംഗത്ത്

ജെ പി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി വരാണസിയിൽ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും

വരാണസിയിലെ ബൂത്ത്തല പാർട്ടി പ്രവർത്തകരെ പ്രധാനമന്ത്രി രാവിലെ അഭിസംബോധന ചെയ്യും

ജെ പി ദേശീയു അധ്യക്ഷൻ അമിത്ഷാ സീനിയർ നേതാക്കളായ രാജ്നാഥ് ്സിംഗ് നിതിൻ ഗഡ്കരി യോഗി ആദിത്യനാഥ് മഹേന്ദ്രനാഥ് പാണ്ഡെ പീയൂഷ് ഗോയൽ എന്നിവർ പ്രധാനമന്ത്രിയോടൊപ്പമുണ്ടാ്വൂം എൻ

എയിലെ പ്രമുഖ നേതാക്കളായ പ്രകാശ് സ്ഥിംഗ് ബാദൽ ബീഹാർ മുഖ്യമന്ത്രി നിതീഷ്കുമാർ ലോക് ജന്ശക്തിയിലെ രാം വിലാസ് പാസ്വാൻ ശിവസേനാ നേതാവ് ഉദ്ദവ് താക്കറെ എന്നിവരും സന്നിഹിതരായിരിക്കും

പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെതിരെ മൂന്നു ലക്ഷത്തിൽപ്പരം വോട്ടുകൾക്കാണ് ശ്രീ

കോൺഗ്രസിലെ അജയ്റായ് സമാജ്വാദി പാർട്ടിയിലെ ശാലിനി യാദവ് എന്നിവരാണ് ഇത്തവണ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ വരാണസിയിൽ മൽസരിക്കുന്നത്

നരേന്ദ്രമോദിക്കെതിരെ സ്ഥാന്ദ്യാർത്ഥിയായി നിർത്താത്ത നിലപാട് കോൺഗ്രസിന്റെ ദൌർബല്യമെന്നു് കേന്ദ്രമന്ത്രി അരുൺ ജയ്റ്റ്ലി കഴിഞ്ഞ രണ്ടാഴ്ചയായി ഇതിന്ന് അനുബന്ധമായി മാധ്യമങ്ങളിൽ കോൺഗ്രസ് തെറ്റിദ്ധാരണ്ട്ജനകമായ വാർത്ത പ്രചരിപ്പിച്ചതിൽ നിരാശനാണെന്നും അദ്ദേഹം ഫെയ്സ്ബുക്കിൽ കുറിച്ചു പ്രധാനമന്ത്രിയ്ക്കെതിരെ മൽസരിക്കാൻ താൻ തയ്യാറായിക്കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മാധ്യമങ്ങൾ ആഘോഷിക്കുകയായിരുന്നു എന്നാൽ ശ്രീമതി പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും അസ്ഥാനത്താണെന്നും ശ്രീ

വാരാണസിയിൽ സ്ഥാനാർത്ഥിയായി അജയ് റായിയെ കോൺഗ്രസ് ഇന്നലെ പ്രഖ്യാപിച്ചിരുന്നു

ഒഡിഷയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്ററിൽ തിരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കമ്മീഷൻ സസ്പെന്റ് ചെയ്തത്

അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സി ബി ഐ ഐ ബി ഡയറക്ടർമാരോടും ഡൽഹി പോലീസ് കമ്മീഷണറോടും കോടതി ആവശ്യപ്പെട്ടു എന്നാൽ ചീഫ് ജസ്റ്റിസിനെതിരെയുളള ആരോപണം ഏകാംഗ കമ്മീഷൻ അന്വേഷിക്കില്ലെന്ന് പരമോന്നത കോടതി വ്യക്തമാക്കി

ജുഡീഷ്യറിയുടെ അന്തസ്സും സത്യസന്ധതയും നിലനിർത്തൂക് എന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സ്ഥാഘത്തിൽ നിന്ന് പിൻമാറിയത് ഇക്കാര്യത്തിൽ ജുഡീഷ്യറി സ്ഥംശ്യത്തിനതീതമായിരിക്കണമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടൂക്യും വേണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പൊതുസുരക്ഷാ നിയമപ്രകാരം രണ്ടു പേരേയും തടവിലാക്കിയതായി എൻഐഎ പ്രസ്താവനയിൽ അറിയിച്ചു

പ്രത്യേക കോടതിയൽ ഹാജരാക്കിയ രണ്ടുപേരേയും ഏഴ് ദിവസത്തേക്ക് എൻഐഎയുടെ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ഭീകര പ്രസ്ഥാനത്തിലേക്ക് ഇന്ത്യയിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത കേസിലാണ് ഇരുവരും പിടിയിലായത്

ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂമധ്യരേഖാ പ്രദേശം തെക്കൻ കേരളം തമിഴ്നാട്തീരം എന്നിവിടങ്ങളിൽ മൽസ്യബന്ധനത്തിന് പോകരുത് കേരള തീരത്തും കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മുൻകരുതലെന്ന നിലയിൽ ഇന്നുമുതൽ മൽസ്യബന്ധനം ഒഴിവാക്കണം ആഴക്കടലിൽ മീൻ പിടിത്തത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഏറ്റവും അടുത്തുള്ള തീരത്ത് എത്തിച്ചേരാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

കരുനാഗപ്പള്ളി വവ്വാക്കാവ് സ്വദേശികളായ സച്ചിൻ നിതിൻ ബാബു എന്നിവരെയാണ് കണ്ടെത്താനുള്ളത് ഇന്നലെ ഉച്ചയേടെ അഴീക്കൽ ബീച്ചിലെത്തിയ അഞ്ചംഗ സംഘം ലൈഫ്ഗാർഡുകളുടെ മുന്നറിയിപ്പ് അവഗണിച്ചു കടലിൽ ഇറങ്ങുകയായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു

പതിനേഴുകാരനായ റിയാൻ പരാഗും ജോഫ്റ ആർച്ചറും ചേർന്നാണ് രാജസ്ഥാനെ വിജയത്തിലെത്തിച്ചത്

ഇന്ന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും

ഇന്തോനേഷ്യയുടെ ഖെയറുന്നിസയെയാണ് സിന്ധു പരാജയപ്പെടുത്തിയത്

അമിത് പംഗൽ കവിന്ദർസിംഗ് ബിഷ്ട് ദീപക് സിംഗ് ആശിശ് കുമാർ എന്നിവർ പുരുഷ വിഭാഗം ഫൈനലിൽ കടന്നു

ശിവഥാപ്പ വെങ്കലം നേടി

ഞായറാഴ്ച ഉണ്ടായ സ്ഫോടന പരമ്പരയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് രാജി

ഇരു വിഭാഗങ്ങളുടെയും വാദം പൂർത്തിയായി അടുത്തമാസം മൂന്നിന് വിധി പ്രസ്താവിക്കുമെന്ന് പ്രത്യേക കോടതി ജഡ്ജി അരവിന്ദ് കുമാർ പറഞ്ഞു